രാജ്യത്തെ കാർഷികമേഖലയുടെ വളർച്ചയ്ക്കായി നവീനസാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഛത്തീസ്ഖണ്ഡ് നിയമസഭാ തെരെഞ്ഞെടുപ്പ് രണ്ടാംഘട്ടത്തിനുളള വിജ്ഞാപനം പുറപ്പെടുവിച്ചു

ക്വാർട്ടറിൽ

വിശദാംശങ്ങളുമായി വീണാ മുകുന്ദൻ

കർഷകർക്ക് മികച്ച കൃഷി രീതികൾ അവലംബിക്കുന്നതിന് സാങ്കേതിക വിദൃയിലൂടെയുള്ള സഹായം ലഭ്യമാക്കും അവരുടെ ഉന്നമനത്തിനായി സോയിൽ ഹെൽത്ത് കാർഡ് സൌരോർജ്ജ പമ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ അഭിനന്ദനാർഹമായ നേട്ടങ്ങളിൽ ഒന്നാണ് കൃഷികുംഭ് ഇത് കർഷകർക്ക് പുതിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത് സാങ്കേതിക വിദൃയുടെ ഉപയോഗംമൂലം കാർഷികരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് കർഷകരുടെ വരുമാന വർദ്ധനവ് പുതിയ സാങ്കേതിക വിദ്യ പരിശീലനം നൽകൽ കാർഷിക മേഖലയിൽ വൈവിധൃങ്ങൾ കൊണ്ടുവരിക എന്നിവ ലക്ഷ്യമിട്ടാണ് മൂന്ന്ദിവസത്തെ കൃഷി കുംഭ് സംഘടിപ്പിച്ചിരിക്കുന്നത്

നാടൻ സംഗീതവും നൃത്തവും കോർത്തിണക്കിയ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്

ബി ഐ യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ

അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനും സുപ്രീകോടതി ഉത്തരവിട്ടു

ബി ഐ മുൻ ഡയറക്ടർ അലോക് കുമാർ വർമ്മയ്ക്കും സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കുമെതിരായ ആരോപണങ്ങളാണ് കേന്ദ്ര വിജിലൻസ് കൂമ്മീഷൻ അന്വേഷിക്കുക

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലിുള്ള മൂന്നംഗ ബഞ്ചാണ് ഹർജി സി ബി ഐ

അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ച നടപടി ചോദ്യം ചെയ്ത് ഡയറക്ടർ അലോക് വർമ്മ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി

ബി ഐയുടെ ഇടക്കാലമേധാവിയായി നിയമിതനായ നഗേശ്വർറാവുവിനെ സുപ്രീംകോടതി വിലക്കി ചൊവ്വാഴ്ച മുതൽ റാവോ കൈക്കൊണ്ടിട്ടുളള തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കേണ്ടതില്ലെന്ന് കോടതി ഉത്തരവ് ഇട്ടു

ബി ഐ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പുരോഗമനപരമായ നടപടിയാണെന്നും ഇത് സുതാര്യത ഉറപ്പു വരുത്തുമെന്നും കേന്ദ്ര ധനകാരൃമന്ത്രി അരുൺജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു വ്യക്തിയോടും ഗവൺമെന്റിന് പ്രത്യേക മമത ഇല്ല

ബി ഐയുടെ ഭരണഘടനാപരമായ ബാധൃതയും പ്രതിച്ഛായയും നിലനിർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബന്ധമാണ് വിഷയത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷ്ക്കന്റെ അന്വേഷണം തികച്ചും സ്വാഗതാർഹമാണെന്നും ധന്നക്ക്റ്റർ ്മന്ത്രി വ്യക്തമാക്കി

പുതിയ വായ്പാതട്ടിപ്പ് നിരോധന നിയമമനുസരിച്ച് കമ്പനിക്കെതിരെ കേസെടുക്കാമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അനുമതി നൽകണമെന്നും എൻഫോഴ്സ്മെന്റ് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

സംഭവത്തിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

കൊല്ലപ്പെട്ട തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ ജവാൻ ബ്രജേഷ്കുമാർ സൈനിക ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു തീവ്രവാദികൾ ബഹ്റാംപുര പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം പ്രത്യേക ദൌത്യ സംഘം ജമ്മുകശ്മീർ പ്പൊലീസ് സി ആർ പി എഫ് എന്നിവർ ഉൾപ്പെട്ട സംയുക്ത്യസ്ട്രീക്ഷം തിരച്ചിൽ നടത്തുകയായിരുന്നു തുടർന്ന് ത്രീവ്രിവാദികൾ വെടിയുതിർക്കുകയും ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും ചെയ്തു

എൻ സംഘത്തിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടാണ് ഡൽഹിയിലെ യു

കേരളത്തിന്റെ പുനർനിർമാണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിന് യു എൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രിയുമായുളള ചർച്ചയിൽ യു എൻ

പുനർനിർമാണത്തിന് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ആവശ്യമായ വിഭവലഭൃത ഉറപ്പാക്കാനും പുനർനിർമാണത്തിനുളള ആസൂത്രണം മേൽനോട്ടം എന്നീ കാര്യങ്ങളിലും യു എൻ സഹായം വാഗ്ദാനം ചെയ്തു പ്രളയമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാനം സമയോചിതമായി നടത്തിയ ഇടപെടലുകളെ യു എൻ

മഴ കൂടുതലുളള കേരളത്തിൽ ഈടു നിൽക്കുന്ന റോഡുകൾ പണിയുന്നതിന് നൂതനമായ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിന് യു എൻ സഹായം ആവ്ശ്യമാണെന്ന നിർദേശം യോഗത്തിൽ ഉയർന്നുവന്നു

അക്രമസംഭവങ്ങളിൽ പങ്കാളിത്തം ഉറപ്പായാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂവെന്നും തെറ്റ് ചെയ്യാത്തവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശം നൽകി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന അറസ്റ്റുകൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വ്യക്തികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി

ഖത്തർ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി ഷെയ്ക് മൊഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി കുവൈറ്റ് ഷൈക് തമീം ബിൻ ഹമാദ് അൽ താനി എന്നിവരുമായി ശ്രീമതി സുഷമ ചർച്ച നടത്തും കൂടാതെ ദോഹയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീമതി സുഷമസ്വരാജ് ആശയ വിനിമയം നടത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചരിത്രപരവും വൈവിദ്ധ്യമാർന്നതുമായ പരസ്പരബന്ധര്ത്ത നേതാക്കൾ വിലയിരുത്തും

ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലേക്കുളള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുളള തീയതി ഇന്ന് അവസാനിച്ചു

ജെ

പി എന്നീ പാർട്ടികളുമായി തെരെഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നതിനെകുറിച്ചും എത്രസീറ്റുകൾ അവർക്ക് നൽകാൻ കഴിയും എന്നതിനെ കുറിച്ചും വൈകാതെ അറിയിക്കുമെന്ന് ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു

ആണവായുധ പരീക്ഷണത്തിൽ നിന്നും ഇറനെ പിൻതിരിപ്പിക്കാനാണ് നടപടിയെന്നും ട്രംപ് പറഞ്ഞു

ഉയർന്ന സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരെ തെരെഞ്ഞെടുക്കുമ്പോൾ കടുത്ത മാർഗ്ഗരേഖകളാണ് ഗൂഗിൾ സ്വീകരിക്കുന്നതെന്ന് സി

വി സിന്ധു കാർട്ടറിൽ

പുരുഷ സിംഗിൾസിൽ കെ

പോയിന്റ് നിലയിൽ പാലക്കാടും കോഴിക്കോടുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ